ഐയുടെ കൊച്ചി ഡി ഐ ജി ഓഫീസ് മാർച്ച് കേസിൽ എൽദോ എബ്രഹാം എം

മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടും വയനാട് കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നാളെ കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന രണ്ടു ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

രുട്ട്ട്ട്ട്ട്ട്ട്ട ഇന്നലെ കൊച്ചി നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിലും ഗതാഗത തടസ്സ ത്തിലും കൊച്ചി കോർപ്പറേഷന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശ നം ഉത്തരവാദിത്വം നിറവേറ്റാത്ത കൊച്ചി കോർപ്പറേഷനെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിരിച്ചുവിടാത്തതെന്ന് ഒരു ഹർജിയുടെ പരിഗണനാ വേള യിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ അഡ്വക്കറ്റ് ജനറൽ നാളെ നേരിൽ ഹാജരാകണമെന്നും ഹൈക്കോ ടതി നിർദ്ദേശിച്ചു ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കോർപ്പറേഷൻ സാഹചര്യമുണ്ടാക്കണം ഓടകളിലെ ചെളി നീക്കാൻ മാത്രം എത്ര കോടി രൂപ കോർപ്പറേഷൻ ചെലവാക്കുന്നുണ്ടെന്ന് കോടത്തി നിരീക്ഷിച്ചു വെള്ള ക്കെട്ട് ഒഴിവാക്കുന്നതിൽ രാഷ്ട്രീയം കളിക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമ ചന്ദ്രൻ നിർദ്ദേശിച്ചു

ഐയുടെ ഡി ഐ ജി ഓഫീസ് മാർച്ച് കേസിൽ എൽദോ എബ്രഹാം എം

എ പാർട്ടി ജില്ലാ സെക്രട്ടറി പി രാജു എന്നി വർ പൊലീസിൽ കീഴടങ്ങി കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേ ധിച്ചതിനെ തുടർന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഓഫീസിലാണ് നേതാക്കൾ ഉൾപ്പെടെ പത്തുപേരും എത്തിയത്

ഐ ജി ഓഫീസ് മാർച്ച്

ബാങ്കുകളുടെ ലയനം നിർത്തിവെക്കണമെന്ന ആവശ്യത്തിൽ അനുകൂല പ്രതികരണമുണ്ടാ തുടർന്നാണ് സൂചനാ പണിമുടക്ക്

രുട്ടിട്ട്ട്ട്ട്ട്ട മുംബൈ ഭീകരാക്രമണത്തിന്റെ ആവർത്തനം ഉണ്ടാവാതിരിക്കാൻ നാവി കസേന നിതാന്ത ജാഗ്രത പുലർത്തി വരികയാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ആക്രമണ ത്തിന് തുടക്കം കുറിക്കില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ഭീഷണിക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം നാവികസേനാ കമാൻഡർമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി

സേനാ എഞ്ചിനീയറിംഗ് വിഭാഗ മാണ് മോർട്ടാർ ഷെല്ലുകൾ നിർവീര്യമാക്കിയതെന്ന് സൈനിക വക്താവ് ജമ്മു വിൽ അറിയിച്ചു

യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ചാണ് ഭാരതപ്പുഴ കൂടാതെ രാമഗംഗ മഹാനദി എന്നിവയുടെ പഠനം നടത്തുക നദികളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനുവേണ്ടിയാണ് പഠനമെന്ന് ഷെഖാവത്ത് ടിറ്റ റിൽ പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട ന ഇന്ത്യയിൽ ഡ്രോൺ ആക്രമണ ഭീഷണി ഉണ്ടാവാതിരിക്കാൻ ഒരാ ഴ്ചയ്ക്കകം നിയന്ത്രണ ചട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് വ്യോമയാന സുരക്ഷാ ബ്യൂറോ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇതുസംബന്ധിച്ച വിശദാംശങ്ങൾ അടുത്തുതന്നെ പുറത്തുവിടും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ തയ്യാറാക്കൽ അവ സാ ന ഘ ട്ട ത്തി ലാ ണെന്ന് ബ്യൂറോ ഡയറക്ടർ ജന റൽ മഹേശ്വർ ദയാൽ പറഞ്ഞു

ഇതുസംബന്ധിച്ച അറിയിപ്പ് പാർലമെന്ററി മന്ത്രാലയം ലോക്സഭ രാജ്യസഭ സെക്രട്ടറിമാർക്ക് കൈമാറി

മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളാണ് വാങ്ങുന്നത് മൂന്ന് പ്രൊജക്ടു കൾക്കാണ് കൌൺസിൽ അനുമതി നൽകിയത് രുവെട്ടിരു പൂർവേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജപ്പാനിലെത്തി ഇന്ന് അദ്ദേഹം ജപ്പാന്റെ നിയുക്ത ചക്രവർത്തി യുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും ഫിലിപ്പൈൻസ് സന്ദർശന ത്തിന് ശേഷമാണ് രാഷ്ട്രപതി ജപ്പാനിലെത്തിയത്

വിരാട് കോഹ്ലി ക്യാപ്റ്റൻ പദവി ഏറ്റശേഷം ഇന്ത്യ നേടുന്ന പതിനൊന്നാം ടെസ്റ്റ് പരമ്പര വിജയമാണിത്

സി ഇന്ന് ബംഗ്ലാദേശ് പീമിയർലീഗ് ചാംപ്യൻമാരായ ബസുന്ധര കിംഗ്സിനെ നേരിടും ചിറ്റഗോംഗിലെ എം എ അസീസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിനാണ് മത്സരം

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കോട്ടയത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പൊലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കായികമേള സംഘടിപ്പിച്ച കേരള അത്ലറ്റിക് അസോസിയേഷൻ ഭാരവാ ഹികൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തത് ഈമാസം നാലിന് അപകടത്തിൽ പരിക്കേറ്റ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ്വൺ വിദ്യാർത്ഥി അഫീൽ ജോൺസൺ ഇന്ന ലെയാണ് മരിച്ചത്

സി ഒഡീഷ എഫ് സിയെ നേരിടും

അദ്ദേഷ്ടങ് കോഴിക്കോട് കൂടത്തായ് കൊലപാതകകേസിൽ ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റജിസ്ട്രർ ചെയ്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച ജോളിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി

നേരത്തെ ജോളിക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുക്കുകയും ജയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു കേ സിൽ സിലിയുടെ മകനിൽ നിന്നും അനേഷണ സംഘം മൊഴിയെടുത്തിരു ന്നു കേസിൽ കൂടുതൽ തെളിവെടുപ്പിനും അന്വേഷണ സംഘം ആലോചി ക്കുന്നുണ്ട്

നിർമ്മാണ കമ്പനി പൂർത്തീകരിച്ച ഫ്ളാറ്റുകൾ കോഴി ക്കോട് കോർപറേഷന് കൈമാറി

കമ്മീഷൻ പ്രസിഡന്റ് ടി

അഗർവാൾ അംഗം എം ശ്രീഷ എന്നിവർ പുല്ലേപ്പടി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ട ഫോറം കോർട്ട് ഹാളിലെ സിറ്റിംഗിൽ പങ്കെടുക്കും

കുന്നംകുളത്ത് നവംബർ രണ്ടു മുതൽ നാലുവരെയാണ് ശാസ്ത്രോത്സവം

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി കെ

ജലീൽ എന്നിവർ പൊന്നാനി യിൽ അന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും

എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധനകൾ നടത്തി അടുത്തഘട്ടത്തിൽ വീണ്ടും പരിശോധന നടത്തും ഓഫിസ് മനോ ഹരമാക്കിയും രേഖകൾ കംപ്യൂട്ടർവത്കരിച്ചും പൌരാവകാശരേഖയിൽ പ രാമർശിച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തിയും ലക്ഷ്യത്തിലേക്ക് എത്താനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് രുട്ടിട്ട്ടിട ഈ വർഷത്തെ നജ്മൽ ബാബു അവാർഡ് സാമൂഹ്യ പ്രവർത്തകനും നടനുമായ കുഞ്ഞാലൻ വെന്നിയൂരിന് നൽകും

എൻ ഷംസീർ എം

എ ഉദ്ഘാടനം ചെയ്യും മറ്റുന്നാൾ സമാപിക്കും

ചിത്തിര ആട്ടവിശേഷത്തിനായി ശനിയാഴ്ച നടതുറ ക്കും

രാവിലെ കണ്ണൂർ രൂപതാ അധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുംതലക്ക് സ്വീകരണം നൽകി ഉച്ചയ്ക്കുശേഷം പതാക താഴ്ത്തുന്നതോടെ തിരുനാളിന് സമാപനമാകും രുട്ട്ട്ട്ട്ട്ട്ട്ട ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ രക്ഷാകർതൃ സംഘടന യായ കോഴിക്കോട് പരിവാറിന് രണ്ട് ദേശീയ പൂരസ്കാരങ്ങൾ ലഭിച്ചു മികച്ച പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ റീതാ പെഷ്വാരിയ അവാർഡും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഏറ്റവും കൂടുതൽ ആളു കളെ വോട്ട് ചെയ്യിച്ചതിന് പ്രഥമ എൻ

ഒ അവാർഡിനുമാണ് കോഴി ക്കോട് പരിവാർ അർഹമായത്